ജോലിയിലും സ്ഥാനക്കയറ്റത്തിലും പട്ടികജാതി പട്ടിക വർഗ സംവ രണം മൌലികാവകാശമല്ലെന്ന സുപ്രീം കോടതി വിധിയിൽ കേന്ദ്രം ആവ ശൃമായ ചർച്ചകൾക്കു ശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര മന്ത്രി താവാർ ചന്ദ് ഗെലോട്ട് രാജ്യസഭയിൽ പറഞ്ഞു ഗവൺമെന്റ് ഈ വിഷയത്തിൽ കോടതിയിലെ കക്ഷിയല്ലെന്നും സത്യവാങ്മൂലം നൽകിയി ട്ടില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി പട്ടികജാതി പട്ടിക വർഗ്ഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി അറിയിച്ചു

സുപ്രീം കോടതി തീരുമാനം ഗൌരവതരമാ ണെന്നും കേന്ദ്രം അടിയന്തരമായി പുനഃപരിശോധനയ്ക്ക് കോടതിയെ സമീപിക്കണമെന്നും കോൺഗ്രസ് നേതാവ് ഗുലാംനബി ആസാദ് ആവ ശ്യപ്പെട്ടു

ധനമന്ത്രി നിർമലാ സീതാരാമൻ പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകും രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായി രിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പാർട്ടി സാമാജികർക്ക് വിപ്പ് നൽകി യിട്ടുണ്ട് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാംഘട്ടം മാർച്ച് രണ്ടിന് ആരംഭിക്കും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പ സമ യത്തിനകം തുടങ്ങും രാവിലെ എട്ടിന് ആരംഭിക്കുന്ന വോട്ടെണ്ണലിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറി യിച്ചു

സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുമായും വകു പ്പു തലവന്മാരുമായും വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കു കയായിരുന്നു അവർ സംസ്ഥാനങ്ങളിൽ കൊറോണ ബാധക്കെതിരെ സ്വീകരിച്ച മുൻകരുതലുകളും ഒരുക്കങ്ങളും അവലോകനയോഗത്തിൽ വില യിരുത്തി സ്ഥിതി നിയന്ത്രണ വിധേയമാണെങ്കിലും വൈറസിനെതിരായ ജാഗ്രത തുടരണമെന്ന് അവർ ആവശ്യപ്പെട്ടു ബോധവൽക്കരണ പരിപാടി കൾ തുടരണമെന്നും മാസ്കുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യ സെക്രട്ടറി നിർദ്ദേശിച്ചു

യാത്രക്കാരെ മൂന്നു ഘട്ടങ്ങളിലായി പരിശോധനയ്ക്ക് വിധേയമാക്കും കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ബീച്ച് ആശുപത്രി യിലെ ഐസൊലേഷൻ വാർഡിൽ മൂന്നു പേരാണ് കഴിയുന്നത്

ആരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്താനായിട്ടില്ല നിരീക്ഷണ കാലാവധി അവസാ നിച്ച ഒൻപതുപേരെ കൂടി നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കി

നാലു പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും രണ്ടുപേർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലുമാണ് കുന്നംകുളത്ത് കൊറോണ സ്ഥിരീകരി ച്ചെന്ന വ്യാജ സന്ദേശമയച്ച കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി

ചൈനയിൽ കൊറോണ മരണം ആയിരം കവിഞ്ഞു

തിരുവനന്തപുരം ജില്ലയിലെ ലൈഫ് ഗുണഭോക്താക്കളുടെ സമ്മേളനവും ഇതിന്റെ ഭാഗമായി സംഘടി പ്പിക്കും

ബേ ഓവലിൽ ഇന്ത്യൻ സമയം രാവിലെ ഏഴരയ്ക്ക് മത്സരം തുടങ്ങും മൂന്നു മത്സര പരമ്പരയിൽ രണ്ടും വിജയിച്ച് ന്യൂസിലാന്റ് പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു

ബെങ്കലുരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യ ന്മാരായ തമിഴ്നാട് സേതു എഫ് സിയെ മറുപടിയില്ലാത്ത മൂന്നു ഗോളി നാണ് ഗോകുലം പരാജയപ്പെടുത്തിയത് കായിക യുവജനകാര്യ വകുപ്പിന്റെയും സ്പോർട്സ് കൌൺസി ലിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഗെയിംസിന്റെ ഭാഗ മായ സംസ്ഥാനതല വടംവലി മത്സരം നാളെയും മറ്റന്നാളും കോഴിക്കോട് ബീച്ചിൽ നടക്കും

കൾ പുറത്തുവിടണമെന്ന് കോഴിക്കോട്ട് സമാപിച്ച കെ എസ് ടി യു സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു നിയമനവും ശമ്പളവും തടയാൻ വേണ്ടിയാണ് കെ

് കണ്ണൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ പതിനേഴര കോടി രൂപ യുടെ നവീകരണ പദ്ധതിക്ക് ദേശീയ സഹകരണ വികസന കോർപറേ ഷൻ അംഗീകാരം നൽകി

ഗവൺമെന്റ് വഴി കൈമാറുന്ന തുക മില്ലിലെ വിവിധ പദ്ധതികൾ പൂർത്തിയാക്കാൻ ചെലവഴിക്കുമെന്ന് ചെയർമാൻ എം സുരേ ന്ദ്രൻ അറിയിച്ചു

ശബരി റെയിൽപാത ഉപേക്ഷിക്കരുതെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി റെയിൽവെ മന്ത്രി പീയുഷ് ഗോയലിന് കത്തു നൽകി ശബരിമലയുടെ പ്രത്യേകത കണക്കിലെടുത്തും സംസ്ഥാനത്തിന്റെ സാമ്പ ത്തിക സാഹചര്യം മുൻനിർത്തിയും പദ്ധതിയുടെ മുഴുവൻ ചെലവും കേന്ദ്രം ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തോട് പദ്ധതി ചെലവിന്റെ പകുതി ഏറ്റെടുക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരു ന്നു

കേരള വിദ്യാർത്ഥി ഊർജ്ജ കോൺഗ്രസിൽ കോഴിക്കോട് ജേതാ ക്കളായി ഊർജ്ജ സാക്ഷരത കുട്ടികളിലൂടെ സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ എനർജി മാനേജ്മെന്റ് സെന്റർ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത്

വയനാട് ബത്തേരി ആനപ്പാറ ഹൈസ്കൂളിൽ ആദിവാസി വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ വാർഡൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു ജില്ലാ പൊലീസ് മേധാവി നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം പി

നട്ടെല്ലിന് പരിക്കേറ്റ കുട്ടി ആശുപത്രി യിൽ ചികിത്സയിലാണ്

കണ്ണൂരിലെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ കൊറോണ പ്രതിരോ ധവും ശുചിത്വും സംബന്ധിച്ച ഏകദിന ജനസമ്പർക്ക പരിപാടി സംഘ ടിപ്പിച്ചു എടക്കാട് നടന്ന പരിപാടിയിൽ വിദഗ്ദ്ധർ ക്ലാസെടുത്തു

വോളിബോൾ കോച്ചും കൊച്ചിൻ പോർട്ട് റിട്ട സീനിയർ ഡെപ്യൂട്ടി ചീഫ് അക്കൌണ്ടന്റുമായിരുന്ന എം ടി

സംസ്കാരം നാളെ നടക്കും

റിജോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികളെയും നെടുങ്കണ്ടം കോടതി നാലു ദിവസം പൊലീസ് കസ്റ്റഡിയിൽ വിട്ടു ഫാം ഹൌസ് മാനേ ജർ വസീമും റിജോഷിന്റെ ഭാര്യ ലിജി കുര്യനുമാണ് കേസിലെ പ്രതികൾ

കേരള മദ്യനിരോധന സമിതി ദക്ഷിണ മേഖലാ ജാഥ ആരംഭി ച്ചു കൊടുങ്ങല്ലൂരിൽ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു

കൊല്ലം അഞ്ചാലുമ്മൂട് കെ

ടി

രാത്രി പത്തരയോടെ പാവുർവയൽ ഭാഗത്തായിരുന്നു അപകടം